പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിൽ പോലീസ് മേധാവികളുടെ വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും

മുംബൈയിലെ ജിന്ന ഹൌസ് ഇന്ത്യയുടേതെന്ന് വിദേശകാര്യ മന്ത്രാലയം

ബി ഐ അറസ്റ്റ് ചെയ്തു

അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ജിം മാറ്റിസ് അടുത്ത ഫെബ്രുവരിയിൽ വിരമിക്കുമെന്ന് പ്രസിഡന്റ് ഡോണൾഡ് ടംപ്

രാമനെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായി തിരഞ്ഞെടുത്തു

നർമദ ജില്ലയിലെ കേവാദിയയിൽ നടക്കുന്ന ഡി ജി പി മാരുടെ സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും

രാജൃത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് എല്ലാ വർഷവും ചേരുന്ന ഡി

പി മാരുടെ യോഗമാണ് ഇത്തവണ കേവാദിയയിൽ നടക്കുന്നത് രാജ്യത്തെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് കേന്ദ്ര ആഭൃന്തര മന്ത്രി രാജ്നാഥ് സിംഗ് സ്റ്മേളനം കഴിഞ്ഞദിവസം ഉദ്ഘാടനം ചെയ്തിരുന്നു

ഗാന്ധിനഗറിലെ അദാലജ് ഗ്രാമത്തിൽ നാളെ നടക്കുന്ന പരിപാടിയിൽ ബി ജെ പി യിലെ വനിരൂപ്പ്പവർത്തകരുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും

ഇത് ആദ്യമായാണ് ഇരു രാജ്യങ്ങളിലേയും നേതാക്കൾ തമ്മിൽ ഉന്നത തല കൂടിക്കാഴ്ച നടത്തുന്നത്

വിനോദ സഞ്ചാരം കല ചലച്ചിത്രം മാധ്യമ രംഗം സാംസ്കാരം പാരമ്പരൃ ഇന്തൃൻ വൈദൃശാസ്ത്രം കായികം ഉന്നത വിദ്യാഭ്യാസ രംഗം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളിലേയും ജനങ്ങൾക്ക് സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള വഴിയൊരുക്കുകയാണ് ചർച്ചയുടെ മുഖൃ ലക്ഷ്യം പീപ്പിൾ ടു പീപ്പിൾ എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്ന പ്രതിഭാസം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീജിൻ പിങും തമ്മിൽ നടന്ന ഷാൻഹായ് സഹകരണ ഉച്ചക്ട്രോടിയിലാണ് നാല് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നില്ല രാത്രിയാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രി ന്യൂഡൽഹിയിലെത്തിയത്

വ്യാവസായിക വികസന നയകാര്യ സെക്രട്ടറി രമേശ് അഭിഷേക് ന്യൂഡൽഹിയിൽ അറിയിച്ചതാണ് ഇക്കാര്യം

യിൽ ചുമത്തുന്നതെന്ന് അരുൺ ജയ്റ്റ്ലി ട്വിറ്ററിൽ ആറിയിച്ചു

എ

സംസ്ഥാനത്ത് ഖനനം പുനരാരംഭിക്കൽ റോഡ് അടിസ്ഥാന സൌകര്യ വികസനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചചെയ്തതായി നഗര ആസൂത്രണ മന്ത്രി വിജയ് സർദേശായി മാധ്യമങ്ങളോട് പറഞ്ഞു

ഹൈദരാബാദിലെ ബൊല്ലാറാമിലുള്ള രാഷ്ട്രപതി നിലയത്തിൽ നാല് ദിവസമാണ് രാഷ്ട്രപതി ശൈതൃകാല വാസത്തിനായി എത്തുന്നത് സിക്കിൾ സെൽ അനിമിയ ഉൾപ്പെടെയുള്ള രക്തസംബന്ധമായ രോഗങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് തെലങ്കാനയിൽ ആരംഭിക്കുന്ന മികവിന്റെ കേന്ദ്രം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തെ മുതിർന്ന വ്യക്തികളുമായും ശ്രീ കോവിന്ദ് കൂടിക്കാഴ്ച നടത്തും

ബി ഐ അറസ്റ്റ് ചെയ്തു ബംഗാളി ദ്ദ്നപത്രമായ ഇ സാമിയുടെ എഡിറ്ററായ ചത്തോപാദ്ധ്യായയെ ചോദ്യം ചെയ്യുന്നതിനായി സി ബി ഐ യുടെ കൊൽക്കത്ത ഓഫീസിൽ വിളിച്ച് വരുത്തുകയായിരുന്നു

ഇദ്ദേഹത്തിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു

ചത്തോപാദ്ധ്യായ ഡയറക്ടറായ കമ്പനി നിയമവിരുദ്ധമായി പണം പിരിച്ചെന്നും ഈ പണം ചത്തോപാദ്ധ്യയുടെ അക്കൌണ്ടുകളിലേക്ക് വകമാറ്റിയതായും സി ബി ഐ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു

സംവിധാനത്തിലേക്ക് മാറുന്നതിനോടൊപ്പം ഗവൺമെൻ ഉദ്യോഗസ്ഥർക്കുള്ള മറ്റ് പരിശീലന പരിപാടികളും ഓൺലൈൻ വഴിയാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചത് കാര്യക്ഷമമായ ഭരണ നിർവ്വഹണം മികച്ച സേവനങ്ങളിലൂടെ നടപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം

സിറിയയിൽ നിന്ന് സൈനിക വിന്യാസം പിൻവലിക്കുന്നു്വെന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെയാണ് മാറ്റിസിന്റെ വിരമിക്കൽ കാര്യം ട്രംപ് പ്രഖ്യാപിച്ചത് അതിനിടെ ജിം മാറ്റിസിന്റെ രാജിക്കത്തിൽ ട്രംപുമായുള്ള അഭിപ്രായ ഭിന്നത ഉള്ളതായാണ് മാധ്യമ റിപ്പോർട്ടുകൾ

അബുദാബിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ സൌദി അറേബ്യയും പാകിസ്ഥാനും പങ്കെടുത്തു രണ്ടു ദിവസമായി നടന്ന ഒത്തുചേരൽ ശുഭപ്രതീക്ഷയ്ക്ക് വകയൊരുക്കിയതായി യു എ

അഫ്ഗാൻ അനുനയ സംഭാഷണത്തിനായും അബുദാബിയിൽ വേദിയൊരുക്കുമെന്ന് വാർത്താ ഏജൻസി അറിയിച്ചു

എഫ്

ശ്യങ്ല സ്ഥാനമൊഴിയുന്നതോടെ റിവ ഗാംഗുലി ദാസ് ബംഗ്ലാദേശിന്റെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി സ്ഥാനമേൽക്കും

എഫ്

എ

വിശദാംശങ്ങളുമായി സീന ആന്റണി

എ

സൌദിയിലെ ദമാം തുറമുഖത്ത് നിന്നാണ് വിക്രം യു എ

ഇന്ത്യയുടെ സൌദി അറേബ്യ സ്ഥാനപതി അഹമ്മദ് ജാവേദ് രാജകുടുംബാംഗങ്ങൾ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ദമാമിൽ സന്ദർശിച്ചിരുന്നു ഇതോടൊപ്പം സൌദി നാവികസേന കപ്പൽ സൌദിയിലെ ഇന്ത്യൻ വംശജർ സ്കൂൾ കുട്ടികൾ വിദേശികൾ തുടങ്ങിയവർ കപ്പലിലെ സൌകരൃങ്ങൾ വീക്ഷിക്കാനെത്തിയിരുന്നു തീരത്ത് നിന്ന് അകലെ നങ്കൂരമിടുന്ന തന്ത്രപ്രധാന്യമുള്ളതും തദ്ദേശീയവുമായി നിർമ്മിച്ച കപ്പലാണ് വിക്രം എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമുള്ള വിക്രം ഇന്ത്യയുടെ സമുദ്ര സുരക്ഷയിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാമൻ നിലവിൽ ബംഗാളി രഞ്ജി ട്രോഫി ടീമിന്റെ കോച്ചാണ്

വി